മധ്യപ്രദേശ് തെലങ്കാന മിസോറാം എന്നിവിടങ്ങളിൽ പ്രചാരണം ഊർജ്ജിതം

കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻതാരം മനീഷമോൺ ക്വാർട്ടർ ഫൈനലിൽ കടന്നു

ഛത്തീസ്ഗഡിൽ പ്രചാരണ ത്തിന്റെ അവസാന ദിവസമായ ഇന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങളുമായി ദീപു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ

അധ്യക്ഷൻ അമിത് ഷാ കേന്ദ്രമന്ത്രി അരുൺ ജയ്റ്റ്ലി ബി ജെ പിയുടെ മറ്റ് പ്രമുഖ നേതാക്കൾ തുടങ്ങിയർ ഇന്ന് വിവിധയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു മുതിർന്ന കോണ്ട്ര്യ്ക്ക്സ് നേതാവ് ആനന്ദ് ശർമ്മ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് ്യൂദവ് എന്നിവരും സംസ്ഥാനത്ത് വിവിധ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പ്രഖ്കടുത്തു

തെലങ്കാന നിയമസഭാതെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പി ക്കാനുള്ള സമയം നാളെ അവസ്ാനിക്കും

ജെ

ഇന്ന് പുറത്തിറക്കി

രാജസ്ഥാനിൽ നിയമസഭ തെരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസ്സിന്റെ മൂന്നാമത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി

ജെ പി നേരത്തെ പുറത്തിറക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഭവനിൽ സത്സംഗ് പുരോഗമിക്കുന്നതിനിടയിൽ മോട്ടോർ ബൈക്കിലെത്തിയ രണ്ട് ആയുധധാരികളാണ് ബോംബെറിഞ്ഞ തെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പരിക്കേറ്റവരെ അമൃത്സറിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പഞ്ചാബ് പൊലീസിന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഫിറോസ്പൂർ വഴി എത്തിയ ജെയ്ഷെ ഇ മൊഹമ്മദ് മൊഹ്മദ് മൊഹ്മദ് മൊഹ്മദ്യാനത്ത് ഒളിഞ്ഞിരിക്കുന്നതായും അവർ ഡൽഹിയിലേയ്ക്ക് കടക്കാൻ സാധ്യതയുള്ളതായും സൂചനയുണ്ട് അൽ ഖയ്ദ കമാണ്ടർ സാക്കിർ മൂസയും പഞ്ചാബിൽ ഒളിച്ചിരിക്കുന്ന തായും സൂചനയുണ്ട് പത്താൻകോട്ടിലെ മാധോപൂർ മേഖലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഡ്രൈവറെ തോക്കുചൂണ്ടി ഒരു വാഹനം കടത്തിക്കൊണ്ട് പോയിരുന്നു ഇവരാരാണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല

പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗുമായി ടെലഫോണിൽ സംഭാഷണം നടത്തിയതായും സ്ഥിതിഗതികൾ അദ്ദേഹം വിശദമാക്കിയതായും ആഭ്യന്തരമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു ഏറ്റവും നിന്ദ്യമായ ഒരാക്രമണമാണ് അമൃത്സറിൽ ഉണ്ടായതെന്നും നിരപരാധികളായ ആളുകൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുക്പ്പുന്നും മന്ത്രി ടിറ്ററിൽ രേഖപ്പെടുത്തി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവ്ടിരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുന്നതായും പ്രിക്കേറ്റവർ എത്രയുംവേഗം സുഖംപ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു

ഗവേഷണ രംഗങ്ങളിലുള്ള വിദഗ്ദ്ധരായ അധ്യാപകരുടേയും ഗവേഷണ തൽപരരായ വിദ്യാർത്ഥിക ളുടെയും എണ്ണത്തിലുണ്ടാകുന്ന കുറവിൽ ഉപരാഷ്ട്രപതി ആശങ്ക അറിയിച്ചു

ഗജ ചുഴലിക്കാറ്റിനെ തുടർന്ന് സംസ്ഥാന ത്തുണ്ടായ നാശത്തിന് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു

ജെ

സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

പിന്നീട് അദ്ദേഹത്തെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റി ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുൻകരുതലെന്ന നിലയിലായി രുന്നു അറസ്റ്റ് സംഘം ചേരൽ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകളാണ് സുരേന്ദ്രനെതിരെ ചുമത്തിയിട്ടുള്ളത് അതേസമയം കൊടുംകുറ്റവാളിയോട് എന്നപോലെയാണ് പോലീസ് തന്നോട് പെരുമാറിയതെന്ന് ശ്രീ

ശബരിമലയിൽ പോലീസ് തേർവാഴ്ചയാണ് നടക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി

ദേശീയ യോഗ നാച്ചുറോപ്പതി ഗവേഷണ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുട നീളം ഉള്ള ആശുപത്രികളിലും പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളിലും മെഡിക്കൽ ക്യാമ്പുകൾ ശിൽപ്പശാലകൾ പ്രദർശനങ്ങൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രകൃതി ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആയുഷ് മന്ത്രാലയം നിരവധി പദ്ധതികൾ ആരംഭിക്കുമെന്ന് ആയുഷ്മന്ത്രി ശ്രീപദ് യെശോ നായിക് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസ്താവിച്ചു സാധാരണ ജനങ്ങൾക്ക് പ്രകൃതി ചികിത്സ സൌകര്യങ്ങൾ ലഭ്യമാക്കുക യാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു

പൊലീസ് ഗവേഷണ വികസന ബ്യൂറോയും ത്ധാർഖണ്ഡ് പൊലീസും സംയൂക്തമായാണ് ദിദിന സമ്മേളനം സംഘടിപ്പിക്കുന്നത് പൊലീസ് സംവിധാനത്തിൽ ലൈംഗിക അതിക്രമങ്ങൾക്ക് എതിരെയുള്ള പ്രവർത്തനങ്ങളിൽ തുടർച്ചയായി ഇടപെടുന്നതിനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുമാണ് ദേശീയ വനിതാപൊലീസ് സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രാലയം പുറത്തിറക്കിയ വാർത്താകുറിപ്പിൽ പറയുന്നു

ഗുരുഗ്രാം ഫരീദാ ബാദ് ബഗാദൂർഗ് എന്നീ നഗരങ്ങൾക്കുശേഷം മെട്രോ കണക്റ്റിവിറ്റി ലഭ്യമാകുന്ന ഹരിയാനയിലെ നാലാമത്തെ നഗരമാണ് ബെല്ലാഭഗ്

ആർ

സന്ദർശനവേളയിൽ വിയറ്റ്നാം രാഷ്ട്രനേതാക്കളുമായി രാഷ്ട്രപ്പിതി ചർച്ചനടത്തും ഇരുരാജ്യങ്ങളും തമ്മിൽ പ്രതിരോധം ഉൾപ്പെടെ വ്യത്യസ്തമേഖലകളിൽ ഊഷ്മളമായ ബന്ധമാണ് നിലവിലുള്ളത് വിയറ്റ്നാം സന്ദർശനം പൂർത്തിയാക്കി ബുധനാഴ്ച രാഷ്ട്രപതി ആ്സ്ട്രേലിയയിലെത്തും

പാർലമെന്റിൽ അടുത്തിടെ ഉണ്ടായ സംഭവവികാസങ്ങളെ തുടർന്ന് നിരവധി പാശ്ചാത്യ നയതന്ത്രജ്ഞ ന്മാർ ഉത്കണ്ഠ അറിയിച്ചതിനെ തുടർന്നാണ് ഇന്നത്തെ യോഗം

അനധികൃത കൊല പാതകങ്ങളും തട്ടിക്കൊണ്ട് പോക്കും വിശദമായി അന്വേഷിക്കാൻ തന്റെ ആദ്യ നൂറ് ദിന ഭരണത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് മാലെയുടെ ഏഴാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ യ്ക്കുശേഷം നടത്തിയ ആദ്യ അഭിസംബോധനയിലാണ് ഇക്കാര്യം വൃക്ത മാക്കിയത് ജനാധിപത്യവും ഭരണഘടനാ നിയമങ്ങളും യാതൊരു വിവേചനവും കൂടാതെ പുനസ്ഥാപിക്കാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് അദ്ദേഹം പറഞ്ഞു

രണ്ടുതവണ ലോക വെങ്കലമേഡൽ നേടിയി ട്ടുള്ള മനീഷ ഹരിയാന സ്വദേശിയാണ് ന്യൂഡൽഹിയിലാണ് മത്സരം

ലോക ക്ട്ടിണ്ണീസ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ലോക ഒന്നാം നമ്പർ നൊവാക്ക് ്ദോക്കോവിച് ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വേരവിനെ നേരിടൂം ഫൈനലിൽ ജയിച്ച് കഴിഞ്ഞ സീസണിലെ റിക്കോർഡിനൊപ്പം എത്താനുള്ള ശ്രമത്തിലാണ് ദ്യോക്കോ വിച്ച്